കേന്ദ്രസംഘം ഇന്ന് എറണാകുളം ജില്ലാ സന്ദർശനത്തിൽ

അദാലത്ത് ഇന്ന് ക്കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ലോക അർബുദ ദിനം

എസ്

നടപടി പൊള്ളത്തരമെന്ന് പ്രതിപക്ഷ നേതാവ്

എസ്

നോർത്ത് ഈസ്റ്റ് യൂണൈറ്റഡ് ഗോവ മത്സരം

ഇന്നലെ തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുമായി സംഘം ചർച്ച നടത്തി

ഇതുവരെ രണ്ടര ലക്ഷിത്തിലേറെ ആരോഗ്യപ്രവർത്തകരാണ് വാക്സിൻ സ്വീകരിച്ചത് കണ്ണൂർ ഇൻട്രോ കണ്ണൂർ ജില്ലയിൽ കൊവിഡ് രോഗബാധിതരുടെ എണ്ണം വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കർശനമാക്കാനും ഡാറ്റാ എൻട്രി സംവിധാനം കാര്യക്ഷമമാക്കാനും ജില്ലാതല കൊവിഡ് അവലോകന യോഗം തീരുമാനിച്ചു വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ

കോവിഡ് മാനദണ്ഡ ലംഘനങ്ങൾക്ക് താക്കീത് നൽകിവിടുന്ന രീതി മാറ്റി എല്ലാ കേസുകളിലും പിഴ ഈടാക്കും

രാമകൃഷ്ണൻ എക്കെ ശശീന്ദ്രൻ കെ

കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിൽ ഉള്ളവർക്ക് സാന്ത്വന സ്പർശം അദാലത്ത് തളിപ്പറമ്പിൽ നടക്കുന്നു സതീശൻ പാച്ചേനി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് തളിപ്പറമ്പിൽ അദാലത്ത് നടത്തുന്ന മന്ത്രി ഇ പി ജയരാജനെതിരെയും മന്ത്രി കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും കോവിഡ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ചടങ്ങിന് നേതൃത്വം നല്കുന്നതിന്റെ പേരിൽ പോലീസ് കേസെടുക്കണമെന്ന് കണ്ണൂർ ഡി സി

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വരൃകേരള യാത്രക്കെതിരെ യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെയും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞു കേസെടുത്ത പോലീസ് സാക്ഷികളായി നിന്നു കൊണ്ടാണ് തളിപ്പറമ്പിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടക്കുന്നതെന്ന് സതീശൻ പാച്ചേനി പറഞ്ഞു

പി വിഭാഗവും ജനറൽ മെഡിസിൻ കിടത്തി ചികിത്സാ സൌകര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽകോളേജ് പൂർണ്ണ സജ്ജമാകുന്നതോടെ അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾക്കായി പാലക്കാട് ജില്ലക്കാർക്ക് മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജീല്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ്

കഞ്ഞിപ്പുര മുതൽ മൂടാൽ വരെയുള്ള ആറ് കിലോമീറ്ററോളം റോഡിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്

സംസ്ഥാനത്ത് താമസിച്ച് ജോലി ചെയ്തു വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സർക്കാർ ലഭൃമാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും മറ്റ് നിയമപരമായ അവകാശങ്ങൾ സംബന്ധിച്ച് വിവരം നൽകുന്നതിനുമാണ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നത്

പി നദ്ദ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബിജെപിയുടെ ആദ്യ നേതൃത്വ യോഗം പാർട്ടി ദേശീയ അദ്ധ്യക്ഷൻ ജെ

വൈകിട്ട് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ ശ്രീ

തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ഇന്നലെയാണ് സംസ്ഥാനത്ത് എത്തിയത്

എസ് വിമത വിഭാഗം കൊച്ചിയിൽ യോഗം ചേർന്ന് ഭാരതീയ ജനസേന എന്ന പുതിയ ക്യാർട്ടിക്ക് രൂപം നൽകി

നീലകണ്ഠനാണ് പാർട്ടി ൽധ്യക്ഷൻ വിമത വിഭാഗം എൻ

എ അംഗത്വം വിട്ടു

ഭാരതീയ ജനസേന യു ഡി

കണ്ണൂരിൽ കൃാൻസർ കൺട്രോൾ കൺസോർഷ്യം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള ഇടപെടൽ കാൻസറിനെ ചെറുത്തുനിർത്താൻ വളരെ സഹായകമാകുമെന്നും അർബുദ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലുള്ളവർക്കും ലഭ്യമാകാൻ ഇടയാകുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

അർബുദ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തി രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് ലോക അർബുദ ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് തിരുവനന്തപുരം ആർ

സിയിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോ

അർബുദ പ്രതിരോധ പ്രവർത്തന്റങ്ങളിൽ ഓരോ വൃക്തിയും കൂടെയുണ്ട് കൂടെ പ്രവർത്തിക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം

യുവജന രോഷം തണുപ്പിക്കാനാണിതെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ അഞ്ച് വർഷവും എടുക്കാത്ത തീരുമാനങ്ങൾ അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ എടുക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷനേതാവ് ആരോപിച്ചു

ജീവന്റെ അമൃതം എന്ന നെക്ടർ ഓഫ് ലൈഫ് പദ്ധതി ആരോഗ്യമന്ത്രി കെ

കൂടുതൽ വിവരങ്ങളുമായി കൊച്ചി ലേഖകൻ എൻ

ആറ് തിയേറ്ററുകളിലായാണ് മേള നടക്കുന്നത്

വിശദാംശുങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

സി യെ നേരിടും